പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി എല്ലാ വിഷയങ്ങളും സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ

ഹോമിയോപ്പതി ദേശീയ കമ്മീഷൻ ബിൽ ലോക്സഭ പാസ്സാക്കി

ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു

കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ശബരിമല തീർത്ഥാടകർക്ക് മെഡിക്കൽ കോളേജ് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി

സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്

ഏതു വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മന്ത്രി പ്രഹ്നാദ് ജോഷി പറഞ്ഞു

പ്രത്യേക സാഹചരൃത്തിലാണ് സഭ സമ്മേളിക്കുന്നതെന്ന് ശ്രീ

ഭൂരിപക്ഷം പാർട്ടികളിലെയും നേതാക്കൾ ചോദ്യോത്തരവേള റദ്ദാക്കിയ നടപടിയെ അനുകൂലിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗ് പറഞ്ഞു

രാജ്യസഭാ ഉപാധ്യക്ഷനായി ഹരിവംശ് നാരായൺ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു

ടി

കൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുയൂർത്തുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ഗവ

ടി

യുടെ ഒന്നാം ഘട്ട വികസനം പ്രവൃത്തിയുടെ ഉദ്ഘാടനം നാളെ മന്ത്രി ടി

ഇതോടൊപ്പം മേഖല ഡയക്ടറേറ്റിനായി തോട്ടടയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്

ജെ പി ദേശീയ തലത്തിൽ നടത്തുന്ന സേവാ സപ്താഹം സേവന പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉൽഘാടനം സംസ്ഥാന പ്രസിഡണ്ട് കെ

ജില്ലാ തല ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

സി ബസ്റ്റാന്റിൽ ബസുകൾ അണു നശീകരണം നടത്തി നിർവഹിച്ചു

കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിന്റെ തരിശ് രഹിത പ്രഖ്യാപനവും ശുചിത്വ പ്രഖ്യാപനവും ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ൃമുഖ്യമന്ത്രി

സി

നിർമ്മാണ പ്രവർത്തനങ്ങ്ളുടെ ഉദ്ഘാടനം മന്ത്രി കെ

ജലീൽ ഓൺലൈനിൽ നിർവഹിച്ചു

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ